മോത്തിഹാരി അമലേഖഞ്ച് പെട്രോളിയം പൈപ്പ്ലൈൻ ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും നേപ്പാൾ പ്രധാനമന്ത്രിയും ചേർന്ന് ഉദ്ഘാടനം ചെയ്യും

ബദൽമാർഗ്ഗങ്ങൾ ക്ക ത്താൻ കേന്ദ്രമന്ത്രി രാംവിലാസ് പസ്വാൻ കമ്പനികളോട് ആവശ്യപ്പെട്ടു

ഉടൻ പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്രം

തിരുവോണത്തെ വരവേൽക്കാൻ മലയാളി ഒരുങ്ങി

ശർമ്മ ഒലിയും ചേർന്ന് ഇന്ന് വീഡിയോ കോൺഫറൻസിലൂടെ നിർവ്വഹിക്കും ദക്ഷിണേഷൃയിലെ ആദ്യ അന്താരാഷ്ട്ര വാതക പൈപ്പ്ലൈനാണിത് ബീഹാർ മോത്തിഹാരിയെയും നേപ്പാൾ അമലേഖ് ഗഞ്ചിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പൈപ്പ് ലൈൻ പ്രകൃതി സൌഹാർദ്ദ പെട്രോൾ വിതരണം ഉറപ്പുവരുത്തുന്നു

മൂന്നൂറ് ലക്ഷത്തി അൻപത് കോടി രൂപ നിർമ്മാണ ചെലവ് വന്ന പദ്ധതിയുടെ നടത്തിപ്പ് ഇന്ത്യൻ ഓയിൽ ക്യോർപ്പറേഷന്റേതായിരുന്നു

കഴിഞ്ഞ രാത്രി ഐസ്ലാന്റിലെ ഇന്ത്യൻ സമൂഹം നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി വിവിധ മേഖലകളിൽ ഇന്തൃയുടെ പുരോഗതിക്ക് ആഗോളതലത്തിൽ അംഗീകാരം ലഭിച്ചുവരികയാണെന്നും രാഷ്ട്രപതി പറഞ്ഞു

എ ഗവൺമെന്റിന്റെ ആദ്യ നൂറ് ദിന നേട്ടങ്ങൾ വിശദീകരിക്കുന്നതിനായി ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്ന് ഉച്ചയ്ക്കു ശേഷം ചെന്നൈയിൽ മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യും

രാജ്യത്തെ ചില മേഖലകളിൽ സാമ്പത്തിക മാന്ദ്യമുടെ ന്ന റിപ്പോർട്ടുകളുടെ സാഹചര്യത്തിൽ സമ്പദ് രംഗം ശക്തമാക്കാൻ ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളും മന്ത്രി വിശദമാക്കും രാജ്യം അഞ്ച് ട്രില്യൻ യു

ഡോളർ സമ്പദ് വ്യവസ്ഥ കൈവരിക്കുവാൻ ലക്ഷ്യമിടുന്ന സാഹചര്യത്തിൽ അതിനായി സ്വീകരിക്കുന്ന നടപടികളെക്കുറിച്ചും ധനമന്ത്രി മാധ്യമങ്ങളോട് വിശദീകരിക്കും

എക്സ് മീഡിയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് സ്വന്തം മകളായ് ഷീന ബോറയെ ക്രൊലപ്പെടുത്തിയ കേസിൽ ജയിലിൽ കഴിയുന്ന മുൻ മാധ്യമ പ്രിവർത്തക ഇന്ദ്രാണി മുഖർജിയെ ചോദ്യം മുബൈയിലെ് പ്രത്യേകകോടതി സി ബി

ഇൌ കേസുമായി ബന്ധപ്പെട്ടാണ് മുൻ കേന്ദ്രമന്ത്രി പി

ബി ഐ കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു

പുതിയ അന്വേഷണ സംഘം കേസുകളുടെ തുടക്കം മുതലുള്ള വിശദാംശങ്ങൾ വീ ും അന്വേഷിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കി ന്യൂഡൽഹിയിലെ വസന്ത് വിഹാർ സൺലൈറ്റ് കോളനി കല്യാൺ പുരി പാർലമെന്റ് സ്ട്രീറ്റ് കനോട്ട് പ്ലയ്സ് പട്ടേൽ നഗർ ഷഹ്ദാരാ എന്നീ പോലീസ് സ്റ്റേഷനുകളിലാണ് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരുന്നത് കേസുകളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അറിയിക്കുവാൻ പൊതുജനങ്ങളോടും സ്പ്രംഘടനങ്ങളോട് പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടൂരി മധ്യപ്രദേശ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖരെ കേസിൽ അമ്പഷേണ സംഘം ചോദൃം ചെയ്യുമെന്ന് ശിരോമണി അഗാലിദ്ദ്ൾ നേതാവ് മഞ്ജീന്ദർ സിംഗ് സിർസ ന്യൂഡൽഹിയിൽ പറഞ്ഞു

ജി സിലി റുകൾ ഉപഭോക്താക്കൾക്ക് വീടുകളിൽ നേരിട്ട് വിതരണം ചെയ്തു

ഈ മാസത്തൈ വിതരണത്തിനുള്ള അവശ്യ സാധനങ്ങളും ഭക്ഷ്യവസ്തുക്കളും ഇന്ധനവും പൂർണ്ണമായും ലഭ്യമാണെന്നും ഔദ്യോഗിക വൃത്തങ്ങൾ പറഞ്ഞു

ഉപഭോക്താക്കളുടെ അവകാശം സംബന്ധിച്ച് ചരിത്രത്തിലാദ്യമായി പുതിയ ബ്ബിൽ കൊ ുവരുന്നതിലൂടെ പുതിയ ഊർജ്ജനയം രൂപീകരിക്കുപ്പാനുള്ള ശ്രമത്തിലാണ് ഗവൺമെന്റെന്ന് ഹൈദരാബാദിൽ മുന്തി ആകാശവാണിയോട് പറഞ്ഞു

ഏതെങ്കിലും വിധത്തിൽ ഏപ്പെട്ടുതി വിതരണം തടസ്സപ്പെട്ടാൽ വിതരണ കമ്പനികളിൽ നിന്നും നഷ്ടം ഇൌടാക്കാൻ ഉപഭോക്താക്കൾക്ക് അവകാശം ലഭ്യമാക്കാനും ബില്ലിൽ വ്യവസ്ഥയു ന്ന് മന്ത്രി പറഞ്ഞു ഗ്രാമ നഗര വൃത്യാസമില്ലാതെ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലൂടെ എല്ലാവീടുകളിലുംവൈദ്യുതിയും പാചകവാതകവും വിതരണം ചെയ്യുവാനാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു

പെപ്സി കൊക്കക്കോള അടക്കമുള്ള കമ്പനികളുമായും ഗവൺമെന്റിന്റെ വിവിധ വകുപ്പുകളുമായും ന്യൂഡൽഹിയിൽ നടത്തിയ ചർച്ചയിലാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം ആവശ്യപ്പെട്ടത്

തിരുവോണത്തെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങി

കള്ളവും ചതിവുമില്ലാത്ത കള്ളപ്പറയും ചെറുനാഴിയുമില്ലാത്ത ഒരു നല്ല കാലത്തിന്റെ ഗൃഹാതുരത്ഥം ഉണർത്തുന്ന സ്മരുണികളുമായി മലയാളികൾ നാളെ തിരുവോണം ആഘോഷിക്കുകയാണ്

തലമുറകളായി മലയാളി നെഞ്ചിലേറ്റി ലാളിക്കൂന്ന് സ്മരണകളാണ് ഓണാഘോഷത്തെ അർത്ഥവത്താക്കുന്നത്

പ്രളയവും അതിജീവനത്തിനായുള്ള ഒരു ബദ്ധപ്പാടുകളും കെടുതികളും ഒന്നും തന്നെ ഒണാഘോഷത്തിന്റെ നിറം കെടുത്തില്ല എന്നതിനുദാഹരണമാണ് നാടും നഗരവും വർണപകിട്ടോടെ ചമയങ്ങളൊരുക്കുന്ന കാഴ്ച

ന്യൂസ്ഡെസ്ക് ആകാശവാണി

പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ചെറുമകൻ ഹസ്റത് ഇമാം ഹുസൈനേയും അദ്ദേഹത്തിന്റെ കൂട്ടാളികളെയും സത്യത്തിന്റെയും നീതിയുടെയും പ്രതീകമായി കർബലയിൽ ബലികഴിച്ചതിന്റെ സ്മരണയ്ക്കായാണ് മുസ്തീംഗങ്ങൾ മുഹ്റം ആചരിക്കുന്നത്

എ

മന്ത്രി മുഹമ്മദ് ഫറാച്ച് അൽ മസ്റോയിയുമായി കൂടിക്കാഴ്ച നടത്തും

ല്ലാണ് കൂടിക്കാഴ്ച എട്ടാമത് ഏഷ്യൻ മന്ത്രിതല വട്ടമേശ സമ്മേളനിത്തിൽ പങ്കെടുക്കുവാനാണ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ യു

യിൽ എത്തിയത്

മഴക്കെടുതികളിൽ ഇതിനകം സംസ്ഥാനത്ത് ഒരു ഡസനോളം ആളുകൾ മരിച്ചതായാണ് റിപ്പോർട്ട്